സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിന് ഐ എസ് ആർ ഒ ആദിത്യ ഉപഗ്രഹംവിക്ഷേപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വടക്കേ ഇന്ത്യയിൽശൈതൃംഅതിരൂക്ഷം ന്യൂഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് ജനജീവിതംദുസ്സഹമാക്കി

എസ് ആർ ഒ പദ്ധതിയിടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബഹിരാകാശത്ത് ഇന്ത്യ വളരെയധികം മുന്നേറുന്നുന്നെും ഈ രംഗത്ത് ഇന്ത്യ പുതിയ സംരംഭങ്ങൾ ഏറ്റെടുത്തിട്ടുന്നെും ശ്രീ നരേന്ദ്രമോദി തന്റെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പറഞ്ഞു ഈ മേഖലയിലെ ഇന്ത്യയുടെ പുരാതനമായ അറിവും അതോടൊപ്പം ആധുനിക നേട്ടങ്ങളും മനസിലാക്കാൻ രാജ്യത്തെ ജനത തയ്യാറാകണമെന്നും ശ്രീ

രാജ്യത്തെ യുവ ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്ര ചരിത്രം അറിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നവർ മാത്രമല്ലെന്നും ബഹിരാകാശത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിന് ദൃഢനിശ്ചയമുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂൾ കേളേജ് തലങ്ങളിലെ ക്ലാസുകളിൽ ജ്യോതിശാസ്ത്ര ക്ലബ്ബുകൾ രൂപീകരിക്കേതിന്റെ പ്രധാന്യത്തെക്കുറിച്ചുക്ക് ശ്രീ

സ്മാമൂഹിക നീതി നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

ജന്മം കൊണ്ട് ഹിന്ദുവാണെങ്കിലും ഗുരുദേവൻ എല്ലാ മതങ്ങളെയും ആദരിക്കുകയും തുല്യമായി കാണുകയും ചെയ്തിരുന്നുവെന്ന് ശ്രീ

ജാതി വൃവസ്ഥയേയും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മറ്റെല്ലാ പ്രവണതകളെയും ഗുരുദേവൻ സൈര്യം നിരാകരിച്ചതായും അദ്ദേഹം കൂട്ടിചേർത്തു

മുരളീധരൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശ്രീ നാരായണ ധർമ സംഘം പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു

നായിഡു ഡൽഹിക്ക് മടങ്ങും

ഈ വർഷം ബ്രിട്ടനെയും ഫ്രാൻസിനെയും മറികടന്ന് ഇന്തൃ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി

എ മാരും എൻ സി പി കോൺഗ്രസ് കക്ഷികളുടെ പത്ത് പേരും ഇന്ന് വൈകിട്ട് മുംബൈയിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും ചടങ്ങിന് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

പീഢനങ്ങൾക്കു വിധേയരായ അഭയാർത്ഥികൾക്ക് രാജ്യത്ത് നൽകുന്നതിനെകുറിച്ചാണ് പൌരത്വം നിയമം അനുശാസിക്കുന്നതെന്നും അല്ലാതെ ആരുടേയും പൌരത്വം കവർന്നെടുക്കുന്നതിനെക്കുറിച്ചല്ലെന്നും ടിറ്റർ സന്ദേശത്തിൽ ശ്രീ

ഈ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സദ്ഗുരു വിശദമാക്കുന്ന വീഡിയോ ലിങ്കും മറ്റൊരു ട്വിറ്റർ സന്ദേശത്തിൽ ശ്രീ

വീഡിയോ നമ്മുടെ സാഹോദര്യത്തെയും സംസ്ക്കാരത്തെയും ഉയർത്തിപ്പിടിക്കുന്നതാണെന്നും ശ്രീ

കേന്ദ്ര ഗവൺമെന്റിന്റെ ചരിത്രപരമായ തീരുമാനമെന്നാണ് ഇന്ത്യൻ സ്മൂഹം നിയമത്തെ വിശേഷിപ്പിച്ചത്

ബാരമുള്ള ജില്ല സന്ദർശിച്ച ലഫ്റ്റന്റ് ജനറൽ സിംഗ് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി താഴ്വരയിൽ സമാധാനം കൊണ്ടു വരുന്നതിന് സൈനികർ നടത്തുന്ന അശ്രാന്ത പരിശ്രമത്തേയും നിസ്വാർത്ഥ സേവനത്തേയും ലഫ്റ്റനന്റ് ജനറൽ റൺവീർസിംഗ് അഭിനന്ദിച്ചു

്ലഫ്റ്റനന്റ് ഗവർണർ അഡ്മിറൽ ഡി

ജോഷി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വിനി കുമാർ ചൌബേ എന്നിവർ ചേർന്ന് പോർട്ട് ബ്ലെയറിലെ ഫ്ളാഗ് പോയിന്റിൽ രാവിലെ ദേശീയ പതാക ഉയർത്തി ഇരുചക്ര റാലിയും സാംസ്കാരിക സമ്മേളനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്

വാജ്പേയിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ നീറമത്തിലുള്ള അടൽ പാർക്കിലാണ് പ്രതിമ സ്ഥാപിച്ചത്

ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ്

വോട്ടെണ്ണൽ അടുത്ത മാസം രിന് നടക്കും

ശൈത്യം ദുസ്സഹമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും രണ്ട് ദിവസം അടച്ചിടാൻ ഹരിയാന ഗവൺമെന്റ് തീരുമാനിച്ചു മേഖലയിലെ റോഡ് റെയിൽ വ്യോമ ഗതാഗത്തെയും ശൈത്യം സാരമായി ബാനിച്ചു വോയ്സ് ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ രാവിലെയും അതിശൈത്യം തുടരുകയാണ്

ജമ്മുകശ്മീരിൽ ഈ കാലയളവിലെ ഏറ്റവും വലിയ തണുപ്പാണ് ഇന്നലെ ശ്രീനഗറിൽ രേഖപ്പെടുത്തിയത്

തണുത്തുറഞ്ഞ പുതുവർഷ പ്പിറവിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഹിമാചൽ പ്രദേശിലും സ്ഥിതി വ്യത്യസ്തമല്ല

സംസ്ഥാനത്തെ മിക്ക നഗരങ്ങളിലും തണുപ്പ് മുൻകാലങ്ങളിലേതിനേക്കാൾ കൂടുതലാണ് മദ്ധ്യപ്രദേശത്തിന്റെ മിക്ക ഭാഗങ്ങളിലും അതിശൈതൃം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലിയോയ്ക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി

കെ യിലേക്ക് കുടിയേറിയത്

ഗ്രെയ്റ്റർ നോയ്ഡയിൽ ഇന്നലെ രാത്രി കാർ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് വീഴുകയായിരുന്നു

മൂടൽമഞ്ഞാണ് അപകടത്തിന് കാരണമെന്നാണ് പൊലീസിന്റെ പ്രാഥമിക നിഗമനം

അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു